വേണ്ട എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാർ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഓക്സിജൻ നിർമ്മാത്ാക്കൾക്ക് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ പ്രധാന്യമ്ന്ത്രി ഉറപ്പുനൽകി

ഗൌരവകരമായ സ്ഥിതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനം

എല്ലിൽ പഞ്ചാബ് കിംഗ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം

പ് സംസ്ഥാനങ്ങളും ഒത്തു ചേർന്ന് എല്ലാ പ്രവർത്തിക്കുകയാണെങ്കിൽ കോവിഡ് മഹാമാരിയെ നേരിടുന്നതിൽ രാജ്യത്ത് വിഭവ ദൌർലഭ്യം അനുഭവപ്പെടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

മഹാ രാഷ്ട്ര ഉത്തർ പ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഢ് ഗുജറാത്ത് ഡൽഹി രാജസ്ഥാൻ കർണ്ണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു

യു കിടക്കകളുടെ എണ്ണം ഉയർത്തുന്നതും കോവിഡ് ചികിത്സാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും ഓക്സിജൻ വിതരണത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതും യോഗത്തിൽ ചർച്ചയായി

ന്യൂസ് ഡസ്ക് ആകാശവാണി

വെല്ലുവിളികളെ അതിജീവിക്കുകയും പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കാണുകയുമാണ് ഇപ്പോൾ മൂന്നിലുള്ള പരിഗണനയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

വ്യവസായ ആവശ്യത്തിനുള്ള ഓക്സിജൻ മെഡിക്കൽ ആവശ്യങ്ങൾക്കായി നൽകുന്നതിലും പ്രിധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഓക്സിജൻ നിർമ്മാതാക്കൾക്ക് ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പുനൽകി മുകേഷ് അംബാനി സോമ മണ്ഡൽ സജൻ ജിണ്ടാൽ നവീൻ ജിണ്ടാൽ ടി വി നരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖ വൃവസായികൾ യോഗത്തിൽ പങ്കെടുത്തു

അത്യാവശൃ ഘട്ടങ്ങളിൽ പുറ്ത്തിറങ്ങുന്നവർ സത്യപ്രസ്താവന കൈയിൽ കരുതണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക പരാധീനത പരിഗണിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം വാക്സിൻ സൌജനൃമായി നൽകണം

അഞ്ച് കിലോഗ്രാം ഭക്ഷ്യധാനൃങ്ങൾ ഓരോ വ്യക്തിക്കും മെയ് ജൂൺ മാസങ്ങളിൽ നൽകും

കോവിഡ് വ്യാപനത്തിന്റെ രണ്ടാം തരംഗം രാജ്യത്ത് രൂക്ഷമായ സാഹചര്യത്തിൽ ദരിദ്ര വിഭാഗങ്ങൾക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാനാണ് നടപടിയെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി

രണ്ടാഴ്ചയ്ക്ക് മുൻപ് വരെ പ്രതിദിനം പതിനായിരത്തിലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്ന മുംബൈയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏഴായിരത്തോളം പുതിയ രോഗികൾ മാത്രമാണ് ഉണ്ടായത് മെയ് രണ്ടാം ആഴ്ചയോടെ രോഗബാധിതരുടെ എണ്ണം വലിയതോതിൽ കുറയുമെന്നാണ് വിദഗ്ധർ കണക്കാക്കുന്നത് അതേസമയം കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി തുടരുന്ന മഹാരാഷ്ട്രയിൽ നഗരങ്ങൾക്കിടയിലും ജില്ലകൾക്കിടയിലും യാത്ര ചെയ്യുന്നതിന് പൊലീസ് ഇ പാസ്സ് സംവിധാനം ഏർപ്പെടുത്തി

കേന്ദ്രത്തിന് കീഴിലുള്ള ആശുപത്രികളിൽ ആയിരക്കണക്കിന് ബെഡുകൾ അധികമായി അനുവദിക്കുകയും ഡൽഹിയുടെ ഓക്സിജൻ വിഹിതം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്

കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് ഇന്ത്യയ്ക്ക് പുറമേ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ മാലിദ്വീപ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാനും യു എസ് ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്

കമ്പനി നിയമം അനുസരിച്ചുള്ള സി എസ് ആർ പ്രവൃത്തികളിൽ ഇത് കൂടി ഉൾപ്പെടുത്തിയതായി കേന്ദ്രം അറിയിച്ചു

കല്ലുപ്പും ഉള്ളിയും കഴിച്ചാൽ കോവിഡ് ഭേദമാകുമെന്ന പ്രചാരണവും ശരിയല്ല സ്റ്റ്മൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം പ്രചാരണത്തിന് ശാസ്ത്രീയ അടിത്തറ ഇല്ലെന്നും ജനങ്ങൾ അവ വിശ്വസ്ട്രിക്ക്രുതെന്നും കേന്ദ്രം അഭ്യർത്ഥിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാല് പൊതുയോഗങ്ങളെ വിർചലായി അഭിസംബോധന ചെയ്തിരുന്നു

സംഭവം നടക്കുന്ന കാലയളവിൽ ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്തിരുന്ന സുനിൽ മാനെയെ പിന്നീട് സ്ഥലം മാറ്റിയിരുന്നു

എല്ലിൽ ഇന്ന് പഞ്ചാബ് കിങ്സ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം